കോവിഡ് രോഗലക്ഷണമില്ലാത്തവർക്ക് യാത്രാനുമതി

രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു

ആഭ്യന്തര യാത്രക്കാർക്കായുള്ള മാർഗനിർദേശങ്ങൾ ആരോഗ്യമന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്

കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നും ആഭ്യന്തര സർവീസുകൾ ഉണ്ടാകും

സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് സ്വന്തം കാറന്റീൻ ചട്ടങ്ങൾക്ക് രൂപം നൽകാമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്

ആദ്യഘട്ട പട്ടികയനുസരിച്ച് അഗത്തി ബംഗളുരു കോഴിക്കോട് ചെന്നൈ ഡൽഹി ഹൈദരാബാദ് കണ്ണൂർ മുംബൈ മൈസൂർ പൂനെ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവ്വീസ് ഉണ്ടാകും

ഇതുപ്രകാരം രാജ്യത്തെത്തിയാൽ ഇവർ രണ്ടാഴ്ചത്തെ നിർബന്ധിത ക്വാറന്റീനിൽ കഴിയേണ്ടതാണ് ഇത് സംബന്ധിച്ച സമ്മതപത്രം വിമാനത്തിൽ കയറുന്നതിനു മുൻപായി എല്ലാ യാത്രക്കാരും നൽകണം

ഉഡാൻ പദ്ധതി പ്രകാരം കൂടുതൽ സർവ്വീസുകൾ നൂട്ടത്തും ആഭ്യന്തര വിമാന സർവീസുകൾക്ക് പുറമെയാണ് ഉഡാൻ സർവീസുകളും നടത്തുന്നത്

കുടിയേറ്റത്തൊഴിലാളികൾക്ക് പുറമെ തീർത്ഥാടകർ വിനോദ സഞ്ചാരികൾ വിദ്യാർത്ഥികൾ വൃദ്ധജനങ്ങൾ എന്നിവർക്ക് ശ്രമിക് ട്രെയിൻ സർവ്വീസിന്റെ പ്രയോജനം ലഭിക്കും

ശ്രമിക് ട്രെയിനുകൾക്ക് പുറമെ അടുത്ത മാസം ഒന്ന് മുതൽ ദ്രാപ്യാത്രാ ട്രെയിനുകൾ ഓടിക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട് കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായും പാലിച്ചാണ് ട്രെയിൻ സർവ്വീസ് നടത്തുന്നത്

റെയിൽവേ അടുത്ത മാസം ഒന്ന് മുതൽ സർവീസുകൾ പുനരാരംഭിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ടിക്കറ്റിന് സാധാരണ നിരക്കാണ് ഈടാക്കുക ശ്രമിക് ട്രെയിൻ സർവീസ് തുടരുമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു മെയിൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തില്ലെന്നും വൃക്തമാക്കിയിട്ടുണ്ട് ടിക്കറ്റുകൾ ഓൺലൈനായോ കൌണ്ടറുകൾ വഴിയോ ബുക്ക് ചെയ്യാം

മൂന്നു വിഭാഗങ്ങളായാണ് കോവിഡ് ആരോഗ്യസംരക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളതെന്ന് ഡോ

പ്രത്യേക കോവിഡ് ആശുപത്രികൾ പ്രത്യേക ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ തീവ്രപരിചരണ വിഭാഗവും വേണ്ടത്ര ഐസൊലേഷൻ വാർഡുകളുമുള്ള കോവിഡ് കേന്ദ്രങ്ങൾ എന്നിവയാണ് തയ്യാറാക്കിയിട്ടുള്ളത്

ഇവയിൽ രണ്ടരലക്ഷത്തിൽപ്പരം കിടക്കകൾ സജ്ജീകരിച്ചിട്ടുണ്ട്

ഇ കിറ്റുകളും വേണ്ടത്ര കരുതലുണ്ടെന്ന് ഡോ

ഇ കിറ്റുകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഡോ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സി

സർക്കാർ സ്ഥാപനങ്ങൾക്കു പുറമെ സ്ഥകാര്യ ലാബുകൾക്കും കോവിഡ് പരിശോധനയ്ക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്

സംസ്ഥാന സർക്കാർ നാല് വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയി പ്രവാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് പ്രതിസന്ധിഘട്ടങ്ങളിലും വികസന രംഗത്ത് കേരളം തകർന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാല് വർഷവും വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തോടൊപ്പം ദുരന്തനിവാരണ ചുമതല കൂടി സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വന്നു ജനങ്ങളുടെ ഒരുമയും സാഹോദര്യവുമാണ് സംസ്ഥാനത്തിന്റെ അതിജീവനത്തിന്റെ പ്രധാന ശക്തിസ്രോതസ്സായി മാറിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒരു മാസം നീണ്ട റംസാൻ ഇന്നലെ അവസാനിച്ചു പ്രാർത്ഥന വീടുകളിൽ തന്നെ നടത്തണമെന്ന് ഡൽഹി ഷാഹി ഇമാം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

കാരുണ്യം സാഹോദരൃം ഐകൃം എന്നിവയുടെ മഹത്ഥമാണ് ഈദ് വിളംബരം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും ശ്രീ

കേന്ദ്രമന്ത്രിമാരായ ശ്രീ

ജമ്മു കശ്മീരിലും കേരളത്തിലും ഇന്നലെയായിരുന്നു ചെറിയ പെരുന്നാൾ ആഘോഷം കോവിഡ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരുന്നു ഈദ് ആഘോഷിച്ചത്

സമാധാനവും സാഹോദര്യവും സമൂഹത്തിൽ നീലനിൽക്കട്ടെയെന്നും സന്ദേശത്തിൽ അദ്ദേഹം ആശംസിച്ചു

വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്ന് മൊഹാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ത്യയ്ക്ക് മൂന്നു തവണ ഒളിമ്പിക് സ്വർണ്ണം നേടിക്കൊടുത്ത ബൽബീർ സിങ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഹോക്കി താരമാണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൽബീർ സിങ്ങിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു

കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരേയും എം എൽ എ മാരേയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്

എസ് എൽ സി ഹയർസെക്കന്ററി വൊക്കേഷണൽ ഹയർ സെക്കന്ററി പരീക്ഷകൾ നാളെ പുനരാരംഭിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസവകുപ്പ് അധ്യാപകർക്ക് നിർദേശം നൽകിയിട്ടുണ്ട്